പുരോഗമിക്കു്ന്നു ജനങ്ങളുടെ പൂർണമായ പങ്കാളിത്തം ഉണ്ടാകണമെന്നഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി

ജോ ബൈഡന് മുൻതൂക്കം

ഡൽഹി ഐ ഐ

ഇന്ത്യയിലെ യുവാക്ക്ൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് സർക്കാർ

പേറ്റന്റുകൾ നാലിരട്ടിയായി വർധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പതിറ്റാണ്ടുകളായി ്കാത്തിരുന്ന ആവശ്യം അഞ്ചു വർഷം മുമ്പ് നടപ്പാക്കിയത് ചരിത്രപരമായ തീരുമാനമായിരുന്നെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു വിമുക്ത ഭടൻമാർക്ക് നൽകിയ വാഗ്ദാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നടപ്പാക്കിയതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു വാഗ്ദാനം നടപ്പാക്കിയതിലൂടെ രാജ്യത്തെ വിമുക്തഭടൻമാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാത്താനായെന്ന് ബി ജെപിദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു

സി വി രാമന്റെ ജീവിതം യുവശാസ്ത്രജ്ഞർക്ക് പ്രചോദനമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഡൽഹി ഐ ഐ ടിയിൽ നടന്ന ബിരുദദാനചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എന്നാൽ പ്രത്യേക സാഹ്ചരൃം പരിഗണിച്ച് മാസ്ക് ധരിച്ചും സാമൂഹൃ അകലം പാലിച്ചും സുരക്ഷിതരാവണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

എന്നാൽ വളരെ കുറഞ്ഞ പോളിങ്ങ് ശതമാനമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിലയിടങ്ങളിൽ വോട്ടിങ്ങ് മെഷീനുകൾ കേടായതും പോളിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്

ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്

പേടി കൂടാതെ വോട്ട് ചെയ്യാനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ എച്ച്

സാങ്കേതിക തകരാറുണ്ടായ വോട്ടിങ്ങ് യന്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റി നൽകിയതായും അദ്ദേഹം പറഞ്ഞു

നയതന്ത്രജ്ഞനായ സിൻഹ കഴിഞ്ഞ ജനുവരി മുതൽ വിവരാവകാശ കമ്മീഷനംഗമായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു

സിൻഹയ്ക്ക് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത്

രാജ്യത്ത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിൽ ബിപിൻ ചന്ദ്രപാലിന്റെ പങ്ക് അവിസ്മരണീയമാണെന്നും ഉപരാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു

രോഗബാധയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ഇന്നലെ അയ്യായിരത്തോളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്ത വർഷം ജനുവൂരിയിൽ ഓക ്സ്ഫോർഡ് സർവകലാശാല കോവിഡ് പ്ലാക്സിൻ ലഭ്യമാക്കുമെന്നാണ് കേന്ദ്രസർക്കാർ അറ്റീയിച്ചിട്ടുള്ളത്

എസ് എൽ വി

അന്തിമ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ജോ ബൈഡന് വൃക്തമായ ഭൂരിപക്ഷമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ വോട്ടെണ്ണലിൽ അട്ടിമറിയുണ്ടെന്നും ഇത് പ്രിശോധിക്കണമെന്നും ഡോണൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു

ഏഴാം ക്ളാസിലേക്കും ഒമ്പതാം ക്ളാസിലേക്കുമുള്ള പ്രവേശനത്തിനായാണ് പരീക്ഷ നടത്തുന്നത്

ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടാം കാളിഫയറിലേക്ക് പ്രവേശിച്ചു നാളെ അബുദാബിയിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും ഈ മത്സരത്തിലെ വിജയികൾ ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും